അഞ്ച് സംസ്ഥാനങ്ങളില്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് പ്പോട്ടിംഗ് മെഷീനുകളിലും പോസ്റ്റൽ ബാലറ്റുകളിലും സ്ഥാനാർത്ഥികളുടെ ഫോട്ടോകൾ ഉണ്ടായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

കേരളത്തിൽ ബ്രുവറി അനുമതി റദ്ദാക്കിയത് കീഴടങ്ങലല്ലെന്ന് മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രി രാജി വയ്ക്കും വരെ പ്രക്ഷോഭമെന്ന് പ്രതിപക്ഷനേതാവ്

സമാധാനപരമായിരുന്നു കശ്മീർ താഴ്വരയിൽ ശ്രീനഗർ മുൻസിപ്പൽ പ്പൂകോർപ്പറേഷൻ പരിധിയിലുള്ള മൂന്ന് വാർഡുകളിലും കുപ്പാര ഹന്ത്വാര ബന്ദിപോറ ബുദ്ഗാം ബാരമുള്ള അനന്ത്നാഗ് മുൻസിപ്പൽ കമ്മിറ്റികളിലുമായിരുന്നു ഇന്ന് വോട്ടെടുപ്പ്

രാജ്യ സേവനത്തിനായി വ്യോമസേന അംഗങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു രാജ്യത്തിന്റെ വ്യോമാതിർത്തികൾ സംരക്ഷിക്കുന്നതോടൊപ്പം പ്രകൃതി ദുരന്തങ്ങളിൽ സത്വര രക്ഷാദൂരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്താനും വ്യോമസേനയ്ക്ക് കഴിയുന്നുണ്ടെന്ന് ചീഫ് മാർഷൽ പറഞ്ഞു

റോഹ്ടെക്കിലെ സംഫാലയിൽ ദീനബന്ധു സർ ചോട്ടു റാമിന്റെ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും കർഷകരുടെയും പിന്നാക്കക്കാരുടെയും മറ്റ് അധഃസ്ഥിതരുടെയും ഉന്നമനത്തിനായി യത്നിച്ച മഹത്വ്യക്തിയാണ് ചോട്ടുറാം സാമൂഹ്യസേവനമേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും

സോനാപെട്ടിൽ റെയിൽവേ കോച്ച് പുനരുദ്ധാരണ യൂണിറ്റിന് പ്രധാനമന്ത്രി സന്ദർശന വേളയിൽ തുടക്കം കുറിക്കും

കാർബൺ വിലനിർണ്ണയ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതിയിൽ ഗവൺമെങ്ക് ഏർപ്പെട്ടിരിക്കുകയാണെന്നും ശ്രീ

സ്ഥാനാർത്ഥികൾ അടുത്തിടെ എടുത്ത സ്റ്റാമ്പ് സൈസ് ഫോട്ടോ സമർപ്പിക്കണമെന്നുള്ളൂ കമ്മീഷൻ നിർദ്ദേശം നല്കി

ഇതാദ്യമായാണ് അഞ്ചു സംസ്ഥാനങ്ങളിലും സ്ഥാന്റാർത്ഥികളുടെ ഫോട്ടോ ഇവിഎമ്മുകൾ ഉപയോഗിക്കുന്നത്

എന്നാൽ വിഷയത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി തീരുമാനമെടുക്കുമ്പോൾ ജാഗ്രത വേണമെന്നായിരുന്നു കാനം രാജേന്ദ്രന്റെ പ്രതികരണം വിശദാംശങ്ങളുമായി സുവർണ്ണ

ബ്രൂവറികൾ അനുവദിച്ച നടപടി റദ്ദാക്കിയ തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും എക്സൈസ് മന്ത്രി രാജിവയ്ക്കുംവരെ യു ഡി എഫിന്റെ പ്രക്ഷോഭം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പ്രതിപക്ഷം വിഷയം ആദ്യം മുതൽ ഉയർത്തിക്കാട്ടിയപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണമായി തള്ളിക്കളഞ്ഞ് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ശ്രമിച്ചത് എന്നാൽ കൃത്യമായ രേഖകളോടെ അഴിമതി പുറത്ത് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴാണ് തീരുമാനത്തിൽ മാറ്റം വരുത്തിയതെന്നും നേതാവ് പറഞ്ഞു വിഷയത്തിലൂണ്ടായ വിവാദം പൂതിയ തീരൂമാനങ്ങളെടൂക്കൂമ്പോൾ ഗവൺമെന്റിന് പാഠമാകണമെന്ന് സി

ബ്രുവറി വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണമെന്ന് ബി ജെ

അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഗവൺമെന്റിന്റെ പുതിയ നിലപാടിലൂടെ വൃക്തമാകുന്നതെന്ന് സംസ്ഥാന അദ്ധ്യക്ഷൻ പി

ശ്രീധരൻപിള്ള ആരോപിച്ചു

എം നടത്തുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി

ശ്രീധരൻപിള്ള കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബിജെപി വിശ്വാസികൾക്ക് ഒപ്പമാണ് ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ എൻ ഡി

എസ് എസ്

അടുത്ത ഞായറാഴ്ച വരെ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കും ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഴ ലഭിക്കും മത്സ്യത്തൊഴിലാളികൾ രണ്ട് ദിവസത്തേയ്ക്ക് കൂടി കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്

കാലാവസ്ഥാ വ്യതിയാനവും സാങ്കേതിക മേഖലയിലെ ആശയപരമായ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി നടത്തിയ പഠനത്തിനാണ് ഇരുവർക്കും പുരസ്കാരം ലഭിച്ചത്

വിവിധ രാജ്യങ്ങളുടെ കാലാവസ്ഥാ വ്യതിയനാങ്ങൾ എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതെന്നും ഓരോ രാജ്യത്തിനും അവരുടെ രാജ്യങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന ഹരിത ഗൃഹവാതകങ്ങളുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ കാർബൺ ടാക്സ് ഏർപ്പെടുത്തണമെന്നുമായിരുന്നു നോർസ് ഹൌസിന്റെ സിദ്ധാന്തം മനുഷ്യന്റെ കഴിവ് കണ്ടെത്തലുകൾ അറിവ് എന്നിവയിലേയ്ക്ക് കൂടുതൽ നിക്ഷേപം നടത്തുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് കരൂത്തേകൂമെന്നായിരുന്നു പോൾ റോമറിന്റെ സിദ്ധാന്തം പലതരം ആശയങ്ങൾ എങ്ങനെയാണ് ദീർഘകാല സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കുന്നതെന്നും പോൾ റോം പഠനവിഷയമാക്കി

ന്യൂസ്ഡസ്ക് ആകാശവാണി

ഒളിംപിക് മെഡൽ ജേത്രീ സാക്ഷി മാലിക് ഏഷ്യൻ ഗെയിം സ്വർണ്ണമെഡൽ ജേതാവ് ബജ്റംഗ് പൂനിയ തുടങ്ങിയവർ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുന്നു